ചൈനയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിയെന്ന ആരോപണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി ട്രസ്റ്റ് ഇന്ദിരാഗാന്ധി ട്രസ്റ്റ് എന്നിവയ് ക്കെതിരെ കേന്ദ്രസർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു

ചൈനീസ് മൊബ്ബൈൽ ആപ്തിക്കേഷനായ ടിക് ടോക് നിരോധിക്കുന്ന കീർച്ചം പരിഗണനയിലെന്ന് അമേരിക്ക ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വിസ നിയന്ത്രണം

കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച രാജ്യാന്തര ക്രിക്കറ്റ് മൽസരങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിക്കും

ഇതിനായി പ്രത്യേക സമിതി രൂപീകരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി

വ്യോമസേന ലഡാക്കിലെ തന്ത്ര പ്രധാന മേഖലയിൽ നിലയുറപ്പിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു അനുഭവസമ്പത്തിന്റെ പിൻബലമുള്ള വ്യോമസേനയ്ക്ക് പ്രതിരോധിക്കാൻ മാത്രമല്ല ഫലപ്രദമായി ആക്രമണം നടത്താനും കഴിയും ഹിമാലയത്തിന്റെ വടക്കൻ അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രത്യേക പരിശീലനവും വിമാനങ്ങളും വ്യോമസേനയ്ക്കുണ്ട്

ദേശീയ സുരക്ഷക്ക് ടിക് ടോക് ഭീഷണി ഉയർത്തുന്ന സാഹചരൃത്തിലാണ് തീരുമാനമെന്ന് അമേരിക്കൻ വിദേശകാരൃ സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു

ക്കി പ്പ് ടിബറ്റൻ മേഖലയിൽ വിദേശികൾക്ക് പ്രവേശനും നൽകുന്നത് സംബന്ധിച്ച് നയരൂപീകരണവുമായി ബ്സൂപ്പെട്ട് പ്രവർത്തിക്കുന്ന ചൈനീസ് സർക്കാർ ഉദ്യോഗസ്ഥിൻക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥർക്കുമാണ് നീ്യന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്

വൈറ്റ് ഹൌസിലെയും ലോകാരോഗ്യ സംഘടനയിലെയും ഉന്നത വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു

ഔദ്യോഗിക വസതിയിൽ വെച്ച് നടന്ന തത്സമയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്

ഗുജറാത്തിലാണ് മഴ ഏറ്റവുമധികം ദുരിതം വിതച്ചത്

പ്രളയത്തിൽപ്പെട്ട കന്നുകാലികൾ ഒഴുകിപ്പോയി

രാജ് കോട്ട് പോർബന്ദർ തുടങ്ങിയ പ്രദേശങ്ങളും പ്രളയത്തെ നേരിടുകയാണ് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും മഴ ശക്തമായി തുടരുന്നുണ്ട് മുംബൈയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്

ബിജ്നോറിൽ വെള്ളത്തിലൊഴുകിയ വാഹനത്തിലെ യാത്രക്കാരെ നാട്ടുകാർ രക്ഷപ്പെടു്തി അസമിലെയും ബീഹാറിലെയും പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്

പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തർ പ്രദേശ് രാജസ്ഥാൻ എന്നിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴക്ക് സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് മിക്ക ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ വെബ്കാസ്റ്റ് വഴി ചേർന്ന അടിസ്ഥാന സൌകര്യ വികസന യോഗത്തിലാണ് നിർദേശം അടിസ്ഥാന സൌകരൃമേഖലയിൽ പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ എത്രയും വേഗം പരിഹരിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു

ടി ടെലികോം വകുപ്പ് മന്ത്രി രവി ശങ്കർ പ്രസാദ് പറഞ്ഞു ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ചെടുത്ത യോട്ട എന്ന സെന്ററിന്റെ വെർച്ചൽ ഉദ്ഘാടനത്തിൽ ഡാറ്റാ സംസാരിക്കുകയായിരുന്നു മന്ത്രി

എന്നാൽ സ്വകാര്യതയെ സംബന്ധിച്ച ആശങ്കകൾ പരിഗണിക്കുമെന്നും ശ്രീ രവി ശങ്കർ പ്രസാദ് പറഞ്ഞു

ബി എസ്

വെട്ടുക്കിളി ശല്യം അകറ്റുന്നതിന് ഡ്രോണുകൾക്ക് പുറമെ ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മറ്റൊരാളിന് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് ആക്രമണം ഉണ്ടായത് പൂഞ്ച് ജില്ലയിലെ ബാലാക്കോട്ട് മെന്ദർ സെക്ടറുകളിലാണ് വെടിനിർത്തൽ ലംഘനം നടത്തിയത്

ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് യാത്രാ ൃ സൌകര്യം ഒരുക്കിയത് ഉൾപ്പെടെ പിന്തുണ നൽകിയ ആളെയ്ട്ട്ണ്ട് അറസ്റ്റ് ചെയ്തത്

ഹമിർപുരിൽ ഇന്ന് രാവിലെ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാളെ വധിച്ചതെന്ന് ഉത്തർപ്രദേശ് ലോ ആൻഡ് ഓർഡർ എ

ഇഴ്സ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മൂന്ന് മത്സര ടെസ്റ്റ് പൂരമ്പയിലെ ആദ്യപോരാട്ടം ഇന്ന് സൌതാംപ്ടണിലെ റോസ് പ്ലൌ്ൾ ക്രിക്കറ്റ് മൈതാനത്ത് തുടങ്ങും